വളരെ വലുതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

സ്വയം പര്യാപ്തത നേടേണ്ടതിന്റെ അവശ്യകത ഈ പ്രതിസന്ധി ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു

പഞ്ചായത്തുകളുടെ വികസന പദ്ധതികൾ തയ്യാറാക്കാനാണിത്

ജനവാസമുള്ള വിദൂര ഗ്രാമപ്രദേശങ്ങളുടെ രേഖാചിത്രം തയ്യാറാക്കാൻ ആളില്ല വിമാനങ്ങൾ ഉപയോഗിച്ച് സർവേ നടത്തുന്ന സ്ഥമിതാ പദ്ധതി ആറ് സംസ്ഥാനങ്ങളിൽ തുടങ്ങിയിട്ടുണ്ട് ആസൂത്രണത്തിനും സ്വത്തുക്കളുടെ അവകാശ വ്യക്തതയ്ക്കും ഇത് ഗുണകരമാകും

ഇ നാം ജം പോർട്ടൽ എന്നിവ ഉപയോഗിച്ച് ഗ്രാമീണ ഉത്പ്പന്നങ്ങൾക്ക് വലിയ വിപണികൾ കണ്ടെത്തണമെന്ന് മഹാരാഷ്ട്രിയിൽ നിന്നുള്ള പഞ്ചായത്ത് പ്രതിനിധിയോട് അദ്ദേഹം ആവശ്യപ്പെട്ടുപ്പ് എല്ലാം ഗ്രാമവാസികളും ആരോഗ്യസേതു ആപ്പ് ഡൌൺലോൾട്ട് ചെയ്യണ്മെന്നും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു

അഹമ്മദാബാദ് സൂററ്റ് ഹൈദ്രാബാദ് ചെന്നൈ എന്നിവിടങ്ങളിൽ അഡീഷണൽ സെക്രട്ടറിമാരുടെ നേതൃത്വത്തിൽ ആരോഗ്യപ്രവർത്തകർ ഉൾപ്പെടെയുള്ള മന്ത്രിതല കേന്ദ്രസംഘം പരിശോധന നടത്തുമെന്നും ് ആഭ്യന്തരമന്ത്രാലയവും അറിയിച്ചു

ലോക്ക്ഡൌൺ കാലയളവ് ഒരു മാസം പിന്നിടുമ്പോൾ വൈറസ് വ്യാപന നിരക്കിൽ ഗണ്യമായ കുറവുണ്ടായതായി കേന്ദ്ര സർക്കാർ അറിയിച്ചു കഴിഞ്ഞ മാസത്തെ അപേക്ഷിച്ച് ഇപ്പോൾ രാജ്യത്ത് കേവിഡ് ആശുപത്രികളുടെ എണ്ണം മൂന്നര് ഇരട്ടിയായി

കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിലെ സുപ്രധാന ആയുധമാണ് ഈ ആപ്പെന്ന് മന്ത്രി സഞ്ജയ് ധോത്രേ പറഞ്ഞു

രാജ്യത്ത് ടെലി മെഡിസിൻ സൌകരൃങ്ങൾക്ക് ഐ ടി കമ്പനികളുടെ സേവനം അദ്ദേഹം ആവശ്യപ്പെട്ടു

അതേസമയം കോവിഡ് മരണനിരക്ക് മൂന്ന് ശതമാനം ആണെന്നും അദ്ദേഹം പറഞ്ഞു കോവിഡ് മഹാമാരിക്കെതിരായ പോരാട്ടത്തിൽ സംസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങളെ ശ്രീ ഹർഷ് വർധൻ പ്രശംസിച്ചു

ഇന്നലെ ആരോഗൃമന്ത്രിമാരുമായി വീഡിയോ കോൺഫറൻസിങ് നടത്തിയ ശ്രീ ഹർഷ് വർധൻ ആശുപത്രികളിൽ കോവിഡ് ഇതര രോഗികൾക്ക് മതിയായ സേവനം ലഭ്യമാക്കുന്നുണ്ടെന്ന് ഉറപ്പു വരുത്തണമെന്നും ആവശ്യപ്പെട്ടു

കൊറോണയ്ക്കെതിരായ പ്രതിരോധ ശേഷിയുള്ളതായും ഇതേപ്പറ്റി ഐസിഎംആർ പഠനം നടത്തുമെന്നുള്ള പ്രവാർത്ത വ്യാജമാണെന്ന് ഐസിഎംആർ ഡയറക്ടർ ഡോ

ീആരോഗ്യ വകുപ്പിലെ ഉദ്യോഗസ്ഥരുമായി വീഡിയോ കോൺഫറൻസിംഗ് നടത്തിയ അദ്ദേഹം രോഗ വ്യാപനം തടയാൻ അവർ നടത്തുന്ന പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ചു

ഹിന്ദി പ്രക്ഷേപണത്തിന് ശേഷം എല്ലാ പ്രാദേശിക ഭാഷകളിലും പരിപാടിയുടെ പ്രക്ഷേപണം ഉണ്ടാകും

പാർപ്പിട സമുച്ചയങ്ങൾക്ക് സമീപത്തെ ചെറുകിട കടകൾ തുറക്കാൻ അനുമതി നൽകിയിരിക്കുന്നത്

എന്നാൽ മുൻസിപ്പൽ പ്രദേശത്തെ വൻകിട വ്യാപാര സ്ഥാപനങ്ങൾ വാണിജ്യ മാളുകൾ എന്നിവ മേയ് മൂന്ന് വരെ തുറക്കാൻ പാടില്ലെന്നും കേന്ദ്രം വ്യക്തമാക്കിയിട്ടുണ്ട്

കാസർകോഡ് ജില്ലയിലാണ് മൂന്ന് കേസുകളും റിപ്പോർട്ട് ചെയ്തത്

കാസർകോഡ് ജില്ലയില്ലെ അഞ്ചുപേരുടെയും പത്തനംതിട്ട മലപ്പുറം കണ്ണൂർ ജില്ലകളിൽ നിന്നുള്ള മൂന്ന് പേർ വീതവും കൊല്ലം ജില്ലയിലെ രൂര്യാളുടെയും പരിശോധന ഫലമാണ് ഇന്നലെ നെഗറ്റീവ് ആയത്ട്

കർണാടകത്തിലെ കുടകിൽ നിന്നും എട്ട് പേരാണ് ഇന്നലെ കാട്ടിലൂടെ കണ്ണൂരിലെത്തിയത്

ഇരിട്ടിയിലെ രണ്ട് കൊറോണ കേന്ദ്രങ്ങളിലാണ് ഇവരെ പാർപ്പിച്ചിരിക്കുന്നത്

കെ രാഘവൻ എം പി പ്രധാനമന്ത്രിക്ക് അടിയന്തര സന്ദേശമയച്ചു

ജില്ലാ കളക്ടറുടെ ശുപാർശ പ്രകാരം കോർപ്പറേഷനിലെ കളിപ്പാംകുളം അമ്പലത്തറ വാർഡുകൾ മാത്രം ഹോട്ട്സ്പോട്ടായി നിലനിർത്താനാണ് തീരുമാനമായത് കോർപ്പറേഷനിലെ മറ്റ് പ്രദേശങ്ങളിൽ ഓറഞ്ച് കാറ്റഗറിയിലുള്ള ഇളവുകൾ ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വരും

കേന്ദ്ര മന്ത്രി എസ് ജയശങ്കറും യു എ ഇ വീദേശകാര്യ മന്ത്രി ഷെയ്ഖ് അബ്ദുള്ള ബിൻ സയ്ദ് അൽ നഹിയാനുമാണ് ഇക്കാര്യങ്ങൾ സംസാരിച്ചത് വൈറസ് വ്യാപനം തടയാൻ ഉള്ള പ്രവർത്തനങ്ങൾ ഊർജ്ജിതമാകണമെന്നും ഇരു രാജൃങ്ങൾക്കിടയിൽ ഉള്ള വിമാന യാത്ര എത്രെയും പെട്ടന്ന് പുനരാരംഭിക്കുന്നത് സംബന്ധിച്ചും ഇരുമന്ത്രിമാരും ചർച്ച ചെയ്തു ഇന്ത്യൻ ജനതയുടെ സുരക്ഷ ഉറപ്പാക്കുന്ന ഖത്തർ ഒമാൻ സൌദി തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങളിലെ ഭരണാധികാരികളോട് ശ്രീ ജയശങ്കർ നന്ദി രേഖപ്പെടുത്തി

തൃാഗത്തിന്റെയും പ്രാർത്ഥനയുടെയും വിശ്വാസത്തിന്റെയും പ്രതീകമായാണ് ലോകമെമ്പാടും റംസാൻ ആചരിക്കുന്നതെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു